ഹർജി തള്ളണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രാവിലെ രാഷ്ട്രപതിക്ക് ശുപാർശ നൽകിയിരുന്നു ഡൽഹി ലെഫ്റ്റനന്റ് ഗവർണർ ഹർജി തള്ളണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു

എന്നാൽ മുകേഷ് ദയാഹർജി സമർപ്പിച്ച സാഹചര്യത്തിൽ വധശിക്ഷ നടപ്പാക്കുന്നത് നീളും രുമ കേന്ദ്രമന്ത്രിമാരുടെ സംഘത്തിന്റെ ജമ്മുകശ്മീർ സന്ദർശനത്തിന് നാളെ തുടക്കമാകും

ഇതു സംബന്ധിച്ച കത്ത് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ജി കിഷൻ റെഡ്ഡി ജമ്മുകശ്മീർ ചീഫ് സെക്രട്ടറി ബി

ആർ സുബ്രഹ്മണ്യത്തിന് നൽകിയിട്ടുണ്ട് ആഭ്യന്തര മന്ത്രി അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം കേന്ദ്രഭരണ പ്രദേശത്തെ വികസനത്തിൽ കേന്ദ്രഗവൺമെന്റ് നടപടികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയാനാണ് സന്ദർശനമെന്ന് കത്തിൽ വ്യക്തമാക്കി രുദ അഞ്ച് ലക്ഷം വരെ ബില്ലുകൾ മാറാൻ ട്രഷറികൾക്ക് മന്ത്രി ഡോ

അഞ്ഞൂറ് കോടി രൂപ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ബില്ലുകൾക്കാണ് വിവിധ വകുപ്പുകളുടെ ബില്ലുകൾ മാറാൻ ഇരുനൂറ് കോടി രൂപയും നൽകും നവംബർ ഡിസംബർ മാസങ്ങളിൽ സമർപ്പിച്ച ബില്ലുകൾ മാറാനാണ് തുക അനുവദിച്ചിരിക്കുന്നത് വായ്പാപരിധി ഉയർത്താനും കുടിശ്ശികയായ കേന്ദ്രവിഹിതം ലഭിക്കുന്നതിനും ശ്രമം തുടരുകയാണെന്ന് തോമസ് ഐസക് തിരുവന്തപുരത്ത് അറിയിച്ചു രുക പൊതു വിപണിയിൽ നിലവിലെ ധനസ്ഥിതി കണക്കിലെടുത്ത് അടുത്തയാഴ്ച പതിനായിരം കോടി രൂപ വീതം മൂല്യം വരുന്ന ഗവൺമെന്റ് കടപ്പത്രങ്ങളുടെ ക്രയവിക്രയം നടത്തുമെന്ന് റിസർവ്വ് ബാങ്ക് അറിയിച്ചു വ്യാഴാഴ്ച പൊതു വിപണി ഇടപെടലുകളുടെ ഭാഗമായിട്ടായിരിക്കും ഇത് നടത്തുകയെന്ന് ആർ

ബി

രുദ സിപിഐഎം കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു ദേശീയ ദ രാഷ്ട്രീയവും പൌരത്വഭേദഗതിയും മൂന്നു ദിവസത്തെ യോഗം ചർച്ച ചെയ്യും യോഗത്തിന് സമാപനം കുറിച്ച് മറ്റന്നാൾ വൈകീട്ട് പുത്തരിക്കണ്ടം മൈതാനത്ത് മഹാ സമ്മേളനം സംഘടിപ്പിക്കും രുമ പൌരത്വ നിയമ ഭേദഗതി സംസ്ഥാനത്ത് നടപ്പാക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി പൌരത്വ നിയമ ഭേദഗതിയ്ക്കെതിരായ യോജിച്ച പ്രക്ഷോഭത്തിന്റെ അന്തരീക്ഷം തകർത്തത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചില നടപടികളാണെന്ന് അദ്ദേഹം ആരോപിച്ചു സെൻസെസിനൊപ്പം എൻ പി ആർ നടപ്പാക്കാൻ ഗവൺമെന്റ് നേരത്തെ ഉത്തരവിട്ടിരുന്നുവെന്നും ആ ഉത്തരവ് ഇതുവരെ റദ്ദാക്കിയിട്ടില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഈ ഉത്തരവാണ് തഹസിൽദാർമാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെന്ന് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു പൌരത്വ സമരത്തിന്റെപേരിൽ പൊലീസ് ജാമ്യമില്ലാകേസ് എടുക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു വാർഡ് വിഭജന ഓർഡിനൻസിൽ ഒപ്പുവയ്ക്കാത്ത ഗവർണറുടെ നടപടിയെ പിന്തുണയ്ക്കുന്നതായി പ്രതിപക്ഷനേതാവ് അറിയിച്ചു പഴയ പട്ടികയനുസരിച്ച് നാൽപ്പത് ലക്ഷം പേരെ വോട്ടർപട്ടികയിൽ പുതുതായി ചേർക്കേണ്ടി വരും വാർഡ് വിഭജനം നടത്താൻ ഗവൺമെന്റിന് അവകാശമില്ലെന്നും വാർഡ് വിഭജനം രാഷ്ട്രീയ പ്രേരിതമായാണ് നടത്തുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു രുമ മുതിർന്ന മാദ്ധ്യമ പ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനുമായ ഡോ

വി ബാബു അന്തരിച്ചു

മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലായിരുന്നു തത്സമയം ദിനപത്രത്തിന്റെ ഡെപ്യൂട്ടി എഡിറ്ററായി പ്രവർത്തിച്ചുവരികയായിരുന്നു ഡോ

ദേശാഭിമാനി സമകാലിക മലയാളം വാരിക മംഗളം ദിനപത്രം എന്നിവയിലും പ്രവർത്തിച്ചിട്ടുണ്ട് കലിക്കറ്റ് സർവകലാശാലാ യു ജി ബോർഡ് ഓഫ് സ്റ്റഡീസ് ജേർണലിസത്തിൽ അംഗമായിരുന്നു നിരവധി പുസ്തകങ്ങൾ രചിക്കുകയും വിവർത്തനം നടത്തുകയും ചെയ്ത അദ്ദേഹം ദേശീയ അന്തർദേശീയ സെമിനാറുകളിൽ പ്രബന്ധവും അവതരിപ്പിച്ചിട്ടുണ്ട് കോഴിക്കോട് പ്രസ്ക്ലബ്ബിൽ പൊതുദർശനത്തിന് വെച്ച ഐ വി ബാബുവിന്റെ ഭൌതികദേഹത്തിൽ മന്ത്രി ടി പി രാമകൃഷ്ണൻ ഉൾപ്പെടെ നിരവധിപേർ ആദരാഞ്ജലി അർപ്പിച്ചു സംസ്കാരം വൈകിട്ട് അഞ്ചിന് കണ്ണൂർ പാനൂർ മൊകേരിയിലെ വീട്ടുവളപ്പിൽ നടക്കും

വി ബാബുവിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു ദര യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ തമ്മിൽ പള്ളിയിൽ മൃതദേഹങ്ങൾ സംസ്ക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഇടപെടില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി ഇതു സംബന്ധിച്ച ഗവൺമെന്റ് ഓർഡിനൻസിലും ഇടപെടാൻ കഴിയില്ലെന്ന് ജസ്റ്റിസ് അരുൺമിശ്ര പറഞ്ഞു കൂടുതൽ നിർബന്ധിച്ചാൽ കോടതിയലക്ഷ്യ ഹർജി തള്ളുമെന്നും ഓർത്തഡോക്സ് സഭ നൽകിയ ഹർജി പരിഗണിച്ച കോടതി അറിയിച്ചു ദരദ ജമ്മുകശ്മീരിലെ കർഗിൽ ജില്ലയിലെ ദ്രാസിൽ സൈനിക പോസ്റ്റിലുണ്ടായ മഞ്ഞിടിച്ചിലിൽ ഒരു സൈനികൻ മരിച്ചു മൂന്ന് പേർക്ക് പരിക്കേറ്റതായി സൈനിക വക്താവ് ജമ്മുവിൽ അറിയിച്ചു കഴിഞ്ഞ ദിവസം കുപ്വാഡയിൽ മഞ്ഞിടിഞ്ഞ് ആറ് സൈനികർ മരിച്ചിരുന്നു രംഭ ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം ഏകദിനം ഇന്ന് രാജ്കോട്ടിൽ നടക്കും

മുംബൈയിൽ നടന്ന ആദ്യ ഏകദിനത്തിൽ ഓസ്ട്രേലിയയോട് പത്തു വിക്കറ്റിന് പരാജയപ്പെട്ട ഇന്ത്യക്ക് ഇന്നത്തെ മത്സരം നിർണായകമാണ് മൂന്നാമത്തെയും അവസാനത്തെയും ഏകദിനം മറ്റന്നാൾ ബംഗുളൂരുവിൽ നടക്കും രെ ഹൊബാർട്ട് ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻതാരം സാനിയമിർസ ഉക്രൈൻ താരം നദിയ കിച്ച്നോവ് സഖ്യം ഫൈനലിൽ കടന്നു സെമിയിൽ ബ്ലാവേനിയൻ ചെക്ക് താരങ്ങളായ തമര സിദൻസെക്ക് മരിയ സഖ്യത്തെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് പരാജയപ്പെടുത്തിയത് ഥഥ ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി എഫ് സി ബംഗുളൂരു എഫ് സിയെ നേരിടും രാത്രി ഏഴരയ്ക്ക് മുംബൈയിലാണ് മത്സരം ഇന്നലെ ചെന്നൈ എഫ് സി എതിരില്ലാത്ത രണ്ട് ഗോളിന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയിരുന്നു ദേദ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ സംഘടിപ്പിക്കുന്ന കൊച്ചി സൈക്കത്തോണിന്റെ മൂന്നാം പതിപ്പ് മറ്റന്നാൾ കൊച്ചിയിൽ നടക്കും മഹാരാജാസ് കോളജ് ഗ്രൌണ്ടിൽ നിന്ന് രാവിലെ ആറിന് ആരംഭിക്കുന്ന സൈക്ലത്തോണിൽ സമൂഹത്തിന്റെ നാനാതുറയിൽപെട്ടവർ പങ്കെടുക്കും

രവീന്ദ്രനാഥ് നിർവ്വഹിക്കും

ദരദ ഭിന്നശേഷിക്കാർക്കായി നൂതന പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പാക്കുമെന്ന് മന്ത്രി കെ കെ ശൈലജ പറഞ്ഞു വയനാട് എസ

ജെ ജൂബിലി ഹാളിൽ ഭിന്നശേഷി സഹായ ഉപകരണ വിതരണവും ബോധവൽക്കരണ ക്യാമ്പും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ദരദ നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്തം എന്ന മുദ്രാവാക്യത്തോടെ ഒരു വർഷം നീണ്ട് നിൽക്കുന്ന ആർദ്രം ജനകീയ കാമ്പയിന്റെ വയനാട് ജില്ലാതല ഉദ്ഘാടനവും ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ആർദ്ര വിദ്യാലയം പദ്ധതിയുടെ ഉദ്ഘാടനവും കൽപറ്റയിൽ മന്ത്രി കെ കെ ശൈലജ നിർവഹിച്ചു സ്റ്റുഡന്റ് ഡോക്ടർ കേഡറ്റ് പദ്ധതിയുടെ മൂന്നാം ബാച്ചിന്റെ പാസിങ് ഔട്ടും ചടങ്ങിൽ നടന്നു ദ്ദേ രാജ്യത്ത് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പദ്ധതി പ്രകാരം അഞ്ച് വയസ്സിന് താഴെ കുട്ടികൾക്ക് മറ്റന്നാൾ പോളിയോ തുള്ളിമരുന്ന് വിതരണം ചെയ്യും തുടർന്ന് രണ്ട് ദിവസങ്ങളിൽ വൊളന്റിയർമാർ വീടുകളിലെത്തിയും തുള്ളിമരുന്ന് വിതരണം ഉറപ്പാക്കും രാജ്യത്ത് തൊഴിൽമേഖലയിൽ കുടിയേറ്റം വർദ്ധിച്ച സാഹചര്യത്തിൽ പൾസ് പോളിയോ തുള്ളിമരുന്ന് യജ്ഞം കൂടുതൽ കാര്യക്ഷമമാക്കാനാണ് ഗവൺമെന്റ് നിർദ്ദേശം ദേദ സംസ്ഥാനത്തെ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് കണ്ണൂർ ജില്ലയിൽ ഭൂമിസംബന്ധമായ തർക്കങ്ങളിൽ സംഘട്ടനങ്ങൾ വർധിക്കുന്നതായി പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷൻ ചെയർമാൻ ബി എസ് മാവോജി പറഞ്ഞു കണ്ണൂരിൽ കമ്മീഷന്റെ മെഗാ അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ദേദ കളിയിക്കാവിളയിൽ എ എസ് ഐ യെ വെടിവെച്ചു കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ പ്രതികൾക്കെതിരെ യു എ പി എ ചുമത്തിയതായി റിപ്പോർട്ട് അറസ്റ്റിലായ പ്രതികളുടെ മൊഴിയിൽ തീവ്രവാദബന്ധം സംശയിക്കു ന്നതിനാലാണ് നടപടി ദരദ കോഴിക്കോട് ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ ശരീര ഭാഗങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ കസ്റ്റഡിയിലുള്ള മുക്കം സ്വദേശി ബിർജുവിനെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു ഇന്നലെ താമരശേരി കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ പൊലീസ് കസ്റ്റഡിയിൽ വിടുകയായിരുന്നു ദദ കോഴിക്കോട് കൂടത്തായ് കൊലപാതക പരമ്പരയിലെ രണ്ടാമത്തെ കേസിൽ അന്വേഷണ സംഘം ഇന്ന് താമരശേരി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും പുലിക്കയം സ്വദേശി ഷാജുവിന്റെ ആദ്യ ഭാര്യ സിലിയുടെ മരണവുമായി ബസപ്പെട്ട കേസിലാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത് ജോളിയാണ് കേസിലെ പ്രധാന പ്രതി രുമ വയനാട് മീനങ്ങാടിയിൽ സ്വകാര്യ ബസ്സിൽ നിന്നും വീണ് കരിമടി സ്വദേശി ജോസഫിനും മകൾ നീതു ജോസഫിനും പരിക്കേറ്റു തുടയെല്ല് പൊട്ടി ഗുരുതരമായി പരിക്കേറ്റ ജോസഫിനെ കൽപറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജീവനക്കാർ ഇവരെ ബസ്സിൽ നിന്ന് തള്ളിയിട്ടതാണെന്ന് ആരോപണമുണ്ട്